സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും പരമപ്രാധാന്യം നൽകുന്നു എന്നതിന് തെളിവാണ് വധശിക്ഷയെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി എല്ലാ മേഖലകളിലും സ്ത്രീശക്തിയുടെ മികവ് പ്രകടമായിക്കഴിഞ്ഞുവെന്നും വനിതാശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന രാജ്യസൃഷ്ടിക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ടെട നിയമത്തിനു മുന്നിൽ നിന്ന് കുറ്റവാളികൾക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ലെന്ന ശക്തമായ സന്ദേശമാണ് നിർഭയ കേസിലെ കുറ്റവാളികളുടെ വധശിക്ഷയെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടു നിർഭയയുടെ മാതാവ് നീതിക്കുവേണ്ടി നടത്തിയ പോരാട്ടം നേരത്തെ മുതൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും നീതി ലഭിക്കാൻ അല്പം കാലതാമസമുണ്ടായെങ്കിലും അന്തിമമായി അവർക്ക് അത് നേടാനായെന്ന് സ്മൃതി ഇറാനി ന്യൂഡൽഹിയിൽ പറഞ്ഞു ടെട നിർഭയക്ക് നീതി ലഭിച്ചെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാശർമ്മ ന്യൂഡൽഹിയിൽ പ്രതികരിച്ചു നാല് കുറ്റവാളികളെയും പുലർച്ചെ തൂക്കിക്കൊന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു രേഖാശർമ്മ നിർഭയക്ക് ഉണ്ടായതുപോലെ കഷ്ടാനുഭവങ്ങൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ പോരാട്ടം തുടരുമെന്ന് അമ്മ ആശാദേവി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഏഴു വർഷത്തെ നിയമപോരാട്ടത്തിന്റെ ഫലമാണ് തൂക്കിക്കൊല്ലൽ ഇന്നത്തെ ദിവസം രാജ്യത്തെ പെൺകുട്ടികൾക്കായി സമർപ്പിക്കുന്നു എന്നും അവർ പറഞ്ഞു ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം വധശിക്ഷ പാഠമായി മാറുമെന്ന് നിർഭയയുടെ അച്ഛൻ ബദരിനാഥ് സിംഗ് പറഞ്ഞു ടെടി മറ്റന്നാൾ മുതൽ ഒരാഴ്ചത്തേയ്ക്ക് അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തി

കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമാണ് പുതിയ നിർദ്ദേശങ്ങൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വീട്ടിനുള്ളിൽ തന്നെ കഴിയണമെന്നും അവശ്യ സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരൊഴികെ സ്വകാര്യ ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികൾ രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവരൊഴികെയുള്ളവരുടെ യാത്രായിളവ് റെയിൽവെ വ്യോമയാന മന്ത്രാലയങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് രെടി മഹാരാഷ്ട്രയിൽ മൂന്ന് പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു

മുംബൈ പൂനെ പിംപ്രിചിഞ്ച് വാദ് എന്നിവിടങ്ങളിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ടെടി ലോകത്ത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ ചൈനയെ മറികടന്ന് ഇറ്റലി

അമേരിക്കയിൽ പത്തും ചൈനയിലും ദക്ഷിണ കൊറിയയിലും മൂന്നു വീതവും മരിച്ചു

ഇവരോടൊപ്പം വിമാനത്തിൽ യാത്രം ചെയ്തയാളുകളുടെ പൂർണവിവരം ലഭിച്ചു ഇവരോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്തവരും ബന്ധപ്പെട്ടു

ടെട്ട സംസ്ഥാനത്ത് ഇനി നടക്കേണ്ട എസ് എൽ സി ഹയർസെക്കണ്ടറി ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു സർവകലാശാലാ പരീക്ഷകളും മാറ്റി തിരുവനന്തപുരത്ത് മുഖ്യന്ത്രി വിളിച്ചുചേർത്ത ഉന്നതതലയോഗത്തിലാണ് തീരുമാനം

ഇതിന്റെ ഭാഗമായി മൂവായിരത്തോളം ക്യാമ്പുകളിലെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് ലേബർ കമ്മീഷണർ പ്രണബ് ജ്യോതിനാഥ് മന്ത്രി ടി

രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വകുപ്പു മേധാവികളുടെ യോഗത്തിൽ വ്യക്തമാക്കി ക്യാമ്പുകളിൽ വൃത്തിയും ആരോഗ്യപരിരക്ഷയും ഉറപ്പുവരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി

എല്ലാ തൊഴിൽമേഖലയിലും ആവശ്യമായ പരിശോധനകൾ നടത്തി തൊഴിൽസ്തംഭനം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു ടെട്ട പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് രണ്ടു പേരെക്കൂടി ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലാക്കി

ഇയാളുടെ നാലാമത്തെ സാമ്പിൾ പരിശോധന ഫലവും നെഗറ്റീവ് ആയതിനെ തുടർന്നാണ് നടപടി കഴിഞ്ഞ രണ്ട് പരിശോധനകളും നെഗറ്റീവ് ആയതിനെ തുടർന്നാണ് ആലപ്പുഴ വൈറോളജി ലാബിൽ നാലാമത്തെ പരിശോധനയ്ക്ക് അയച്ചത് നേരത്തെ ഇദ്ദേഹത്തിന്റെ അമ്മ ഭാര്യ മകൻ എന്നിവരുടെ റിപ്പോർട്ടുകളും നെഗറ്റീവ് ആണെന്ന് കണ്ടെത്തിയിരുന്നു ടെട്ട ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ച മലയാളി യാത്ര ചെയ്ത ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലെ ഗോ എയർ കൌണ്ടറിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കിയാൽ മാനേജിങ്ഡയറക്ടർ നിർദ്ദേശം നൽകി

ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കുന്ന കാര്യവും പരിഗണനയിലാണ് രെഴ കാസർകോട് മഞ്ചേശ്വരം എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്നും എം സി കമറുദ്ദീനും വീട്ടിൽ കൊവിഡ് നിരീക്ഷണ ത്തിലായി കാസർകോട്ടെ രോഗബാധിതനൊപ്പം വിവാഹച്ചടങ്ങിലും പൊതുപരിപാടിയിലും പങ്കെടുത്തതിനെ തുടർന്നാണിത് ടെടി വയനാട് മുട്ടിലിൽ കൊ റോണ നിരീക്ഷണം ലംഘിച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്തു

മെഡിക്കൽ കോളേജിൽ മൂന്നുപേരും ബീച്ച് ആശുപത്രിയിൽ ഏഴു പേരും ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലുണ്ട്

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കൊറോണ മഹാമാരിയെ നേരിടാൻ ജനങ്ങൾ സ്വയം തയ്യാറെടുക്കണമെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയതെന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു

അല്പസമയത്തിനകം ഗവർണർക്ക് രാജിക്കത്ത് നൽകുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റിനെ അട്ടിമറിയ്ക്കാൻ ബി ജെ പി കോടികൾ മുടക്കിയെന്ന് കമൽനാഥ് ആരോപിച്ചു

മഡ്ഗാവ് എറണാകുളം സൂപ്പർഫാസ്റ്റ് ലോകമാന്യതിലക് എറണാകുളം തുരന്തോ എക്സ്പ്രസ് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട് ടെട എറണാകുളം കായംകുളം എറണാകുളം കൊല്ലം കന്യാകുമാരി കൊല്ലം മെമു ട്രെയിനുകളും എറണാകുളം ഗുരുവായൂർ ഗുരുവായൂർ തൃശൂർ തൃശൂർ കോഴിക്കോട് പുനലൂർ ഗുരുവായൂർ കോട്ടയം വഴി പോകുന്ന എറണാകുളം കായംകുളം എറണാകുളം ഗുരുവായൂർ തൃശൂർ ഗുരുവായൂർ ഗുരുവായൂർ പുനലൂർ കോഴിക്കോട് തൃശൂർ തൃശൂർ ഗുരുവായൂർ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനുകളുമാണ് റദ്ദാക്കിയത്